യൂറോപ്പ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഉപരാഷ്ട്രപതി എം

ഭൂട്ടാനിൽ മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന്

ഒമാനിലെ മസ്ക്കറ്റിൽ ഇന്ന് തുടക്കം

രണ്ടുദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ് ഇന്ത്യൻ സംഘത്തിന് ഉപരാഷ്ട്രപതി നേതൃത്വം നൽകും ഉദ്ഘാടന ചടങ്ങിലും പ്ലീനറി സമ്മേളനത്തിലും ശ്രീ

ഉച്ചകോടിയോട് അനുബന്ധിച്ച് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ആഗോള വെല്ലുവിളികൾ നേരിടാൻ ആഗോള പങ്കാളികൾ എന്നതാണ് ഇൌ വർഷത്തെ ഏഷ്യ യൂറോപ്പ് ഉച്ചകോടിയുടെ പ്രമേയം വാണിജ്യം നിക്ഷേപം സുരക്ഷ വിനോദസഞ്ചാരം എന്നീ രംഗങ്ങളിൽ ഏഷ്യക്കും യൂറോപ്പിനും സഹകരിക്കാനുള്ള മേഖലകൾ കണ്ടെത്താനും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള പ്രധാന വേദിയായാണ് ഉച്ചകോടി പരിഗണിക്കപ്പെടുന്നത്

ബൽജിയം രാജാവുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ജയിൻ സാംസ്കാരിക കേന്ദ്രത്തിൽഇന്ത്യൻ സമൂഹത്തേയും അദ്ദേഹം അഭിസംബോധന ചെയ്യും ബ്രസ്സൽസിലെ ആന്റ്വെർപ്പിലുള്ളി ഗ്രാന്ധി പ്രതിമയിൽ ശ്രീ

സിരിസേനയേയും ശ്രീലങ്കയുടെ മുൻ പ്രതിരോധ സെക്രട്ടറിയേയും അപായ്പ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചു എന്ന് താൻ പറഞ്ഞതായുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ശ്രീ

ഇത് സംബന്ധിച്ച വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അത് വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം ശ്രീ

ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശക്തമായ സൌഹൃദം തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും ശ്രീ

മോദിയെ ശ്രീലങ്കയുടെ ആത്മാർത്ഥ സുഹൃത്തായാണു കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജ വാർത്തയ്ക്കെതിരെ പ്രസിഡന്റും ശ്രീലങ്കൻ ഗവൺമെന്റും സ്വീകരിച്ച നിലപാടിനെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു പ്രചരണം തീർത്തും അടിസ്ഥാന രഹിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിൽ അദ്ദേഹം സന്തോഷം അറിയിച്ചു

അയൽപക്കം തന്നെ പ്രഥമം എന്നാണ് ഇന്ത്യയുടെ നയവും മുൻഗണനയുമെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി വൃക്തമാക്കി

ദേശീയ അസംബ്ലിയിലേയ്ക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചുവരെയാണ്

എൻ

റ്റി പാർട്ടികളാണ് മത്സരരംഗത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്നത് സമാധാനപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യയിലേയും യൂറോപ്യൻ യൂണിയനിലേയും ഏഴ് പ്രതിനിധികളെ തെരഞ്ഞെടുപ്പ് നടപടി ക്രമങ്ങൾ വീക്ഷിക്കാൻ ഭൂട്ടാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചിട്ടുണ്ട്

എന്ന് തുടങ്ങുന്ന ഭജൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്നു ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഗായകർ പാടുന്നതായുള്ള ഭജൻ പങ്കുവയ്ക്കുന്നതായി പ്രധാനമന്ത്രി ഇന്നലെ ട്വിറ്ററിൽ കുറിച്ചു ഡെൻമാർക്ക് ക്യൂബ ജർമ്മനി ഗ്രീസ് ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള് ഗ്രായകരാണ് ഭജൻ ആലപിച്ചിരിക്കുന്നത് ന്യൂസ് ഓൺ എയറിന്റെ വെബ്ഐസ്റ്റിൽ നിന്നോ എയർ ന്യൂസ് അലർട്ട്സ് എന്ന ട്വിറ്റർ അക്കൌണ്ടീൽ നിന്നോ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാകും

ലൈംഗീക പീഡന ആരോപണ മുയർന്നതിനെ തുടർന്നാണ് ശ്രീ

വൃക്തിഹത്യ നടത്തിയതായി ആരോപിച്ച് അക്ബർ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്

ഒറ്റപ്പെട്ടതും പിന്നാക്കം നിൽക്കുന്നതുമായ മേഖലകളിൽ ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം തീരെ ചെറിയ ശാഖ അഥവാ അൾട്രാ സ്മാൾ ബ്രാഞ്ച് യു എസ് ബി

ബാങ്കിംഗ് മേഖലയിലെ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കും

ലഡാക്കിൽ ആരംഭിച്ച് മറ്റു ജില്ലകളിലേയ്ക്കും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത്തരം ശാഖകൾ വ്യാപിപ്പിക്കാനാണു തീരുമാനം

ക്രമസമാധാന പാലത്തിനായി പമ്പ സന്നിധാനം നിലയ്ക്കൽ ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്

മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കെതിരെ ജാമൃമില്ലാ വൃവസ്ഥ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ശ്രീ

സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പമ്പയിലും നിലയ്ക്കലിലും കൂടുതൽ ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു

അതിനിടെ ശബരിമലയിൽ യുവതി പ്രവേശ്നന്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മ സമിതി ഇന്ന് കേരളത്തിൽ പ്പകർ ഹർത്താൽ നടത്തുന്നു

ജെ

ശബരിമലയിൽ സമാധാനം പുലർണം എന്നാവശ്യപ്പെട്ട് ഇന്ന് യു ഡി എഫ്

തുലാമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ടാണ് ശബരിമല നട തുറന്നത് യുവതി പ്രവ്യേശനത്തിനെതിരെ നിലക്കലും പമ്പയിലും നടന്ന പ്രതിഷേധം അക്രിമാസക്തമായതോടെ സമര സമിതി പ്രവർത്തകരും പൊലീസും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി നിരവധി പേർക്കു പരിക്കേറ്റു

യുവാക്കളാണ് കൂടുതലും ആക്രമണത്തിനിരയായത്

വൻ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി രക്തസാക്ഷികൾ പറഞ്ഞു രാജ്യത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഏർപ്പെടുത്തിയതായി ക്രിമിയൻ നേതാവ് സെർജി അക്സ്യോനോവ് പറഞ്ഞു ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ്പുടിനും വൃക്തമാക്കി

വിശദാംശങ്ങളുമായി നന്ദകുമാർ

കിഡംബി ശ്രീകാന്തും സൈന നെഹ്വാളും ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ താരങ്ങൾ ഈ റൌണ്ടിൽ മത്സരിക്കുന്നുണ്ട് പുരുഷ വിഭാഗം സിംഗിൾസിൽ കിഡിംബി ശ്രീകാന്ത് ചൈനയുടെ ലിൻ ഡാനെ നേരിടും ഇന്തോനേഷ്യൻ താരം ജൊനാഥൻ ക്രിസ്റ്റിയെ ഇന്ത്യൻ താരം സമീർവർമ്മ നേരിടും

സമീപകാലത്ത് ജക്കാർത്തയ്യിൽ മീകച്ച പ്രകടനം നടത്തിയ ശേഷമാണ് ഇന്ത്യ പുരുഷ ഹോക്കിച്ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെ ത്തുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന് ടൂർണമെന്റിൽ പാക്കിസ്ഥാൻ മലേഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ടീമുകളും മത്സര രംഗത്തുണ്ട്

ശിവരാജ് സിംഗ് ചൌഹാൻ ഗവൺമെന്റ് മികച്ച പ്രവർത്തനം നടത്തിയതിലൂടെ മധ്യപ്രദേശ് മിക്വൂറ്റ സംസ്ഥാനമായി അറിയപ്പെട്ട് തുടങ്ങിയെന്നും ശ്രീ മോദി പറഞ്ഞു ഗവൺമെന്റ് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടേയും വികസനം എന്ന മന്ത്രത്തിൽ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

തീർത്ഥാടനത്തിന് വളരെ മുമ്പ് സൌകര്യം ഏർപ്പെടുത്താനാണ് നടപടിക്രമങ്ങൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ടെലിഫോൺ സേവനദാതാക്കളുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ നിയമമായി ഇത് ഉൾപ്പെടുത്താൻ ടെലികോം കമ്മീഷൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തിരുമാനിച്ചു